അവതരിപ്പിച്ചേക്കും

സൈനൃം പരാജയപ്പെടുത്തി

കർണാടകയിൽ തുടക്കമായി

കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദാണ് രാജ്യസഭയിൽ ബിൽ അവതരിപ്പിക്കുക ബിൽ പരിഗണിക്കാനിരിക്കെ ബി ജെ

യും കോൺഗ്രസും വിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ബില്ലിനെ എതിർക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചേർന്ന പ്രതിപക്ഷപാർട്ടികളുടെ യോഗത്തിൽ ധാരണയായി എന്നാൽ പ്രതിപക്ഷ ബഹളം മൂലം രാജ്യസഭ ഉച്ചയ്ക്ക് രണ്ട് മണി വരെ നിർത്തിവച്ചിരിക്കുകയാണ്

ഇന്നലെ അന്തരിച്ച വിഖ്യാത ചലച്ചിത്രകാരൻ മൃണാൾ സെന്നിന് ശ്രദ്ധാജ്ഞലി അർപ്പിച്ചുകൊണ്ടാണ് രാജ്യസ്ഭ ്ഇന്ന് ആരംഭിച്ചത്

കാവേരി ആന്ധ്രാപ്രദേശ് വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിന് പുറത്തും പ്രതിഷേധം ഉയർന്നു

നോബേൽ ജേതാക്കൾ വിഖ്യാത ശാസ്ത്രജ്ഞർ നയതന്ത്രജ്ഞർ യുവ ഗവേഷകർ വിദ്യാർത്ഥികൾ തുടങ്ങി രാജ്യത്തിനകത്തും പുറത്തുമുള്ള മുപ്പതിനായിരം പ്രതിനിധികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും

കൂടുതൽ വിവരങ്ങളുമായി റിനൽ ജോസഫ്

ഇന്ത്യൻ പോസ്റ്റുകൾ ആക്രമിക്കാൻ ഇന്നലെ രാത്രി നടത്തിയ നുഴഞ്ഞുകയറ്റ ശ്രമമാണ് സൈന്യത്തിന്റെ സന്ദർഭോചിതമായ ഇടപെടലിലൂടെ തകർത്തത് നിയന്ത്രണ രേഖയോടടുത്ത വനമേഖലയിലൂടെയാണ് സംഘം നുഴഞ്ഞുകയറാൻ ശ്രമം നടത്തിയത്

വലിയൊരു സംഘമാണ് നുഴഞ്ഞുകയറാൻ ശ്രമിച്ചതെന്നാണ് റിപ്പോർട്ട്

സംഘത്തിലെ മറ്റുള്ളവർ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നതായുള്ള സൂചനയെ തുടർന്ന് ഇന്ത്യൻ സൈന്യം പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയാണ്

എണ്ണവില വർദ്ധന അമേരിക്ക വ്യാപാരയുദ്ധർ അമേരിക്കയുടെ സാമ്പത്തിക ചൈന നിയന്ത്രണങ്ങൾ എന്നീ പ്രതികൂല ഘടകങ്ങൾ രാജ്യാന്തര തലത്തിൽ നിലനിൽക്ക്ുന്നുവെങ്കിലും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചുയെ അത് പ്രത്യക്ഷത്തിൽ ബാധിക്കില്ലെന്ന് സിഐഐ കണക്ക് കൂട്ടുന്നു സേവനമേഖലയിലും അടിസ്ഥാന വികസന മേഖലയിലും ഉണ്ടായിട്ടുള്ള വളർച്ചാ അനുപാതം സാമ്പത്തികരംഗത്ത് കൂടുതൽ ഉണർവ്വുണ്ടാക്കുമെന്നും സിഐഐ പറയുന്നു

ടി നടപ്പാക്കിയത് വിപണിയിലെ വർദ്ധിച്ചു ആവശ്യകത അടിസ്ഥാന വികസന മേഖലയിലെ നിക്ഷേപങ്ങൾ എന്നിവ സാമ്പത്തിക വളർച്ചയ്ക്ക് അനുകൂല ഘടകങ്ങളാണ്

എസ്

തീവ്രവാദികളായ മുഫ്തി മുഹമ്മദ് സുഹൈൽ ഉൾപ്പെടെ പത്ത് പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഭീകരാക്രമണത്തിനും പ്രധാന രാഷ്ട്രീയ നേതാക്കളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാനും പദ്ധതിയിടുന്നതിനിടെയായിരുന്നു അറസ്റ്റ്

എ പരിശോധന നടത്തിയിരുന്നു

ശബരിമലയിലെ വിധിക്കു പിന്നാലെ സ്ത്രീകളെ രംഗത്തിറക്കി നാടിന്റെ മതനിരപേക്ഷതയെ തകർക്കാനുള്ള ശ്രമമുണ്ടായി തുടർന്നാണ് നവോത്ഥാനമൂല്യങ്ങളുള്ള സംഘടനകളുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചത് വനിതാ മതിലിനെപ്പറ്റി വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത പ്പാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രീ വനിതാമതിലിന് വിവിധ സംഘടനകളും വൃക്തികളും പിന്തുണ അറിയിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പ്പ്രിഫ്രിക്കുന്നത് വർഗ്ഗസമരത്തിന്റെ ഭാഗം തന്നെയാണ്

നവോത്ഥാന പാരമ്പര്യമുള്ള ഒരു സംഘടന തന്നെ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വനിതാമതിലിൽ പങ്കെടുക്കാൻ കേരളത്തിലെ എല്ലാവർക്കും അവകാശമുണ്ട് എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കാത്തവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു

കെ ശൈലജ അട്ടപ്പാടിയിൽ ഉദ്യോഗിസ്ഥ്രുടെ അവലോകനയോഗം നടത്തി ശിശുമരണ നിരക്ക് കുറയുന്നതുവരെ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക പരിശോധന മേഖലയിൽ ഉണ്ടാകുമെന്ന് മന്ത്രി യോഗത്തിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

താനൂർ ദേവധാർ ഹയർസെക്കൻഡറി സ്കൂളിൽ ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണ വിതരണ പരിപാടിയിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ലോകചാമ്പ്യൻഷിപ്പിൽ വെള്ളി വെങ്കല മെഡൽ ജേതാക്കളായ സോണിയ ചാഹൽ ലവ്ലിന ബോർ ഗൊയ്ൻ പിങ്കി ജൻഗ്ര നിഖാത് റെഹൻ എന്നിവർ മത്സരത്തിനുണ്ട്